എഫിന്റെയും യു

എ ഫിന്റെയും മത്സരചിത്രം വ്യക്തമായി

ജെ പി സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിക്കും

എഫിന്റെയും യു

എ ഫിന്റെയും മത്സരചിത്രം വ്യക്തമായതോടെ ഇന്നു മുതൽ സംസ്ഥാ നത്ത് പ്രചാരണച്ചൂട് ഏറിത്തുടങ്ങും രണ്ട് മുന്നണികളിലും കൂടി ഒമ്പത് എം

എമാരാണ് ലോക്സഭയിലേക്ക് പോകാൻ മത്സ രിക്കുന്നത് സിപിഐഎമ്മിലെ എ പ്രദീപ്കുമാർ എ എം ആരിഫ് വീണ ജോർജ്ജ് പി വി അൻവർ എന്നിവർ ലോക്സഭയിലേക്ക് മത്സരി ക്കുമ്പോൾ കോൺഗ്രസിൽ നിന്ന് കെ മുരളീധരൻ അടൂർ പ്രകാ ശ് ഹൈബി ഈഡൻ എന്നിവരാണ് ലോക്സഭാ സ്ഥാനാർഥികൾ സിപിഐ നേതാക്കളായ സി ദിവാകരനും ചിറ്റയം ഗോപകുമാറും ഇവർക്കൊപ്പമുണ്ട്

ഇന്ന് പുലർച്ചെ ഒരു മണിയോളം നീണ്ട കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം സ്ഥാനാർഥികളെ സംബ ന്ധിച്ച തീരുമാനം എടുത്തു ഇത് പരിശോധിച്ച് അന്തിമ തീരുമാനം പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ എടുക്കുമെന്ന് ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ഡൽഹിയിൽ പറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളിലെ സ്ഥാനാർഥികളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്നും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ചേരുന്നുണ്ട് അതിനൊപ്പ മായിരിക്കും കേരളത്തിലെ സ്ഥാനാർഥികളെയും പ്രഖ്യാപിക്കുന്ന ത് മറ്റന്നാൾ എൻ

എ സ്ഥാനാർഥികളുടേതടക്കം സ്ഥാനാർഥി പട്ടിക സംയുക്തമായി പ്രഖ്യാപിക്കുമെന്നും കൃഷ്ണദാസ് പറഞ്ഞു സംസ്ഥാന ഘടകം നൽകിയ സ്ഥാനാർഥി പട്ടികയിൽ കേന്ദ്ര നേതൃത്വം കാരൃമായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നാണ് സൂചന

ആറ്റിങ്ങലിൽ അടൂർ പ്രകാശും ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനും മത്സരി ക്കും ഇന്നലെ രാത്രി ഹൈക്കമാൻഡ് പുറത്തിറക്കിയ പട്ടികയിൽ ഇവരുടെ പേരുകൾ ഉൾപെടുത്തിയിട്ടുണ്ട്

മുരളീധരനെയും വയനാട്ടിൽ ടി സിദ്ധീഖി നെയും സ്ഥാനാർഥികളായി ഇന്നു വൈകീട്ട് പ്രഖ്യാപിച്ചേക്കും വട ക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പര്യടനം നടത്തുന്ന കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ഡൽഹിയിൽ തിരിച്ചെത്തിയ ശേഷമാ യിരിക്കും വടകര വയനാട് മണ്ഡലങ്ങളിലെ ഔദ്യോഗിക സ്ഥാനാർഥി പ്രഖ്യാപനം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നേരത്തെ പൂർത്തിയാക്കി ഗോദയി ലേക്ക് കടന്ന എൽഡിഎഫ് പ്രചാരണത്തിന്റെ അടുത്ത ഘട്ടത്തി ലേക്ക് കടന്നു പാർലമെന്റ് അസംബ്ലി മണ്ഡല് കൺവെൻഷനു കൾ പൂർത്തിയാക്കിയ എൽ ഡി എഫിന്റെ മേഖലാ ബൂത്ത് തല കൺവെൻഷനുകൾ രണ്ട് ദിവസത്തിനകും പൂർത്തിയാകും

മൂന്ന് ഘട്ടങ്ങളായാണ് പരൃടനം ക്രമീകരിച്ചിരിക്കുന്നത് ഇടതുപക്ഷം എന്തിനാണ് പാർലമെന്റിലേക്ക് മത്സരിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ചെങ്ങ ന്നൂരിൽ ആവശ്യപ്പെട്ടു

രാഹുൽഗാ ന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ ഇടതുമുന്നണിക്ക് വോട്ട് ചെയ്യേണ്ട തില്ലെന്നും ചെന്നിത്തല പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യത്തിൽ കാർഷിക വായ്പാ മൊറട്ടോറിയം പ്രഖ്യാപിച്ച് ഉത്തരവിറക്കാൻ ആവില്ലെന്ന വാർത്തകൾ തെറ്റിദ്ധാരണാജനകമാണെന്ന് ചീഫ് സെക്രട്ടറി ടോംജോസ് അറിയിച്ചു

ബാങ്കുൾ ഉൾപ്പെടെ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കർഷകരെ ടുത്ത കാർഷിക വിദ്യാഭ്യാസ വായ്പകൾക്കും മറ്റു വായ്പ കൾക്കും മൊറട്ടോറിയം നിലനിൽക്കുന്നുണ്ടെന്നും ഇക്കാരൃത്തിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ചീഫ് സെക്രട്ടറി തിരുവനന്തപുരത്ത് അറിയിച്ചു

ഹോളി ആഘോഷത്തിന്റെ തലേനാളായഇന്ന് ഹോളി ദിനങ്ങൾ എന്ന പേരി ലായിരിക്കും നരേന്ദ്രമോദിയുടെ പ്രസ്ംഗമെന്ന് ബി ജെ

ഗോവയിൽ ബി ജെ പിയുടെ പ്രമോദ് സാവന്ത് മന്ത്രിസഭ ഇന്ന് വിശ്വാസ വോട്ട് തേടും

ജെ

ജെ പി എം എൽ എമാരുടെയും സഖ്യകക്ഷികളിലെ ആറു പേരുടെയും മൂന്ന് കക്ഷിരഹിതരുടെയും പിന്തുണ മന്ത്രിസഭയ്ക്കുണ്ടെന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ അറിയിച്ചു

തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ ഡൽഹിയിൽ വിളിച്ചുചേർത്ത യോഗത്തിലാണ് ഫേസ്ബുക്ക് ട്വിറ്റർ ടിക്ടോക് എന്നിവയുടെ പ്രതിനിധികളും ഇന്റർനെറ്റ് ആൻഡ് മൊബൈൽ അസോസിയേഷൻ ഭാരവാഹികളും ഇക്കാരൃം അറിയിച്ചത്

സായുധ സേനയുടെ പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ ത്തിന് ഉപയോഗിക്കരുതെന്ന് കേന്ദ്ര തിരഞ്ഞെടൂപ്പ് കമ്മീഷൻ രാ ഷ്ട്രീയ പാർട്ടികൾക്ക് നിർദേശം നൽകി സൈനികരുടെ ചിത്രങ്ങൾ പ്രചാരണത്തിന് ഉപയോഗിക്കരുതെന്നു മുൻ നിർദേശത്തിന്റെ തു ടർച്ചയാണ് പുതിയ തീരുമാനമെന്നും കൃമ്മീഷൻ വൃക്തമാക്കി ആ രാധനാലയങ്ങളെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉപയോഗിക്കരു തെന്നും കമ്മീഷൻ നിർദേശിച്ചു തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ പണമോ മദ്യമോ മറ്റു സാധനങ്ങളോ ഉപയോഗിക്കുന്നുണ്ടോയെന്ന് വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരടങ്ങിയ സംഘം പരിശോധിക്കും മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപു രത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാണം

ഇടുക്കി ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രിചാരണത്തിന് വോട്ട് വണ്ടി പര്യടനം ആരംഭിച്ചു

നിർമാണത്തിലിരിക്കുന്ന വീടുകൾക്കും ഫ്ളാറ്റുകൾക്കും പഴ യതോ പുതിയതോ ആയ ചരക്കു സേവന നിരക്ക് ഈടാക്കാൻ നിർമാതാക്കൾക്ക് ജി

നിർമാണച്ചെലവിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ ഈടാ ക്കിയിരുന്ന എട്ട് ശതമാനം ജിഎസ്ടി നിരക്കോ പുതുക്കിയ ഒരു ശതമാനം നിരക്കോ നിർമാതാക്കൾക്ക് ഈടാക്കാം

മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പിനാകി ചന്ദ്രഘോഷിനെ ഇന്ത്യയുടെ ആദ്യ ലോക്പാലായി രാഷ്ട്രപതി നിയമിച്ചു ജസ്റ്റിസ് ദിലീപ് ഭോസ്ലേ പ്രദീപ്കുമാർ മൊഹന്ദി അഭിലാഷ കുമാരി അജയ് കുമാർ ത്രിപാഠി എന്നിവരെ ജുഡീഷ്യൽ അംഗങ്ങളായും നിയമിച്ചു സശസ്ത്ര സീമാബൽ മുൻ മേധാവി അർച്ചന രാമസുന്ദരം മഹാ രാഷ്ട്ര മുൻ ചീഫ് സെക്രട്ടറി ദിനേശ് കുമാർ ജയിൻ മഹേന്ദ്രസി ങ് ഇന്ദ്രജിത്ത് പ്രസാദ് ഗൌതം എന്നിവരാണ് ലോക്പാലിലെ നോൺ ജുഡീഷ്യൽ അംഗങ്ങൾ

ബാങ്ക് ജപ്തി ചെയ്ത വീടും പുരയിടവും ലേലത്തിൽ എടുത്തയാൾക്ക് വിട്ടു കൊടുക്കണമെന്ന ആദ്യ ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചതിനാണ് ശിക്ഷ എറണാകുളം ജനറൽ ആശുപത്രിയിലെ പാലിയേറ്റീവ് കേന്ദ്രത്തിൽ രണ്ട് പേരും സാമൂഹ്യ സേവനം ചെയ്യാനാണ് നിർദേശം എറണാകുളം സ്വദേശി പ്രീതാ ഷാജിക്കും ഭർത്താവിനും എതിരെയാണ് നടപടി

മൊത്തക്കച്ചവടക്കാർക്ക് വിതരണം ചെയ്യാൻ കഞ്ചാവ് കൊണ്ടുവരുന്നുണ്ടെന്ന വിവരത്തെതുടർന്ന് അടിവാര ത്തിന് സമീപം നടത്തിയ പരിശോധനയിലാണ് കാറും കഞ്ചാവും പിടികുടിയത് പാലക്കാട് ചന്ദ്രനഗറിൽ വിദേശത്ത് നിന്നും ഇറക്കുമതി ചെയ്ത ഒരു കോടി രൂപയിലധികം വിലവരുന്ന ലഹരിവസ്തുക്കളുമായി ര ണ്ടു പേരെ അറസ്റ്റ് ചെയ്തു കോങ്ങാട് സ്വദേശി രാഹുൽ കല്ലടി ക്കോട് സ്വദേശി സുജിത് എന്നിവരാണ് പിടിയിലായത് ബൈക്കിൽ ലഹരി വസ്തുക്കൾ കടത്തുമ്പോഴാണ് എക്സ്സൈസ് സംഘം ഇവരെ പിടികൂടിയത്

മരുന്ന് വ്യാപാ രികളും വിതരണക്കാരും ആശുപ്പത്രികളും ഫാർമസികളും ഈ മാസം എട്ടിന് പുറപ്പെടുവിച്ച ഉത്തരവിലെ വില മാത്രമേ ഈടാ ക്കാവൂ എന്ന് ഡ്രഗ്സ് കൺട്രോളർ നിർദേശിച്ചു

ഓച്ചിറയിൽ വർഷങ്ങളായി പ്ലാസ്റ്റർ ഓഫ് പാരീസ് ശിൽപ ങ്ങൾ വിൽക്കുന്ന കുടുംബത്തിലെ കുട്ടിയെ കാറിലെത്തിയ നാലംഗസംഘം തട്ടിക്കൊണ്ടുപോകുകയായിരുന്നു പ്രദേശ വാസി കളായ ഇവരെ അന്വേഷിച്ചു വരികയാണ് തിങ്കളാഴ്ച രാത്രിയാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് മലപ്പുറം എ ആർ നഗറിൽ വെസ്റ്റ്നൈൽ പനിബാധിച്ച് ഏഴു വയ സുകാരൻ മരിച്ച പ്രദേശത്ത് കോട്ടയം വെക്ടർ കൺട്രോൾ ഗവേ ഷണ കേന്ദ്രത്തിലെ സംഘം പരിശോധന നടത്തും സംസ്ഥാന എന്റമോളജി സംഘവും സ്ഥലത്തെത്തും തുടർന്ന് ജില്ലാ മെഡി ക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ അവലോകന യോഗവും ചേരും പത്ത് ദിവസത്തെ പൈങ്കുനി ഉത്രം ഉത്സവത്തിന് ശബരിമലയിൽ നാളെ സമാപനമാകും നാളെ ഉച്ചയോടെയാണ് പമ്പയിലെ ആറാട്ട് ചടങ്ങിനു ശേഷം തിരിച്ചെഴുന്നള്ളിപ്പ് സന്നിധാനത്ത് എത്തു ന്നതോടെ ഉത്സവത്തിന് കൊടിയിറങ്ങും പ്രസിദ്ധമായ ചേർത്തല പൂരം ഇന്ന് വൈക്ടീട്ട് നാലിന് പൂരം വേലതുള്ളലും പടയണിയും നടക്കും

പുന്നപ്ര സ്വദേശി ജിനേഷിനാണ് പരിക്കേറ്റത്